പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിൽ വീഴ്ച വരുത്തിയ പ്രോസിക്യൂട്ടറെ പുറത്താക്കിയതായും മുഖ്യമുന്തി നിയമസഭയിൽ നിയമസഭയിൽ ഇന്നു് ് പ്രതിപക്ഷ വാക്കൌട്ട്

യൂണിവേഴ്സിറ്റിയില്ലെ പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച വിഷയത്തിലാണ് പ്രതിപക്ഷ വാക്കൌട്ട് ഇടമൺ കൊച്ചി പവർ ഹൈവേ മുഖ്യമന്ത്രി പിണറായി ന് വിജയൻ ഇന്ന് അടൂരിൽ ഉദ്ഘാടനം ചെയ്യും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്

മുന്നേറുന്നു

കേസിൽ പ്രതികളെ വെറുതെ വിട്ട ഉത്തരവ് ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു കേസ് ആദ്യം അന്വേഷിച്ച എസ് ഐ യെ സസ്പെൻഡ് ചെയ്യുകയും സി

കേസിൽ വീഴ്ച വരുത്തിയതിന് ഉത്തരവാദിയായ ഗവൺമെന്റ് വക്കീലീന്നെ പുറത്താക്കിയെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു

റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളിൽ പരിശോധിച്ച് കേസ് എടുക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു

കേരള യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു പ്രതിപക്ഷത്തെ റോജി എം ജോൺ ആണ് അടിയന്തിര പ്രമേയ നോട്ടീസ് നൽകിയത് എന്നാൽ സർവ്വകലാശയിലെ മാർക്കു തിരിമറിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചതായും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഡോ

ടി ജലീൽ മറുപടി നൽകി ക്രമേക്കേട് കണ്ടെത്തിയ മാർക്ക് ലിസ്റ്റുകൾ റദ്ദാക്കാൻ സർവ്വകലാശാല തീരുമാനിച്ചിട്ടുണ്ട് കംപ്യൂട്ടർ ശൃംഖലയുടെ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി രജിസ്ട്രാറെ സസ്പെന്റ് ചെയ്തു സോഫ്റ്റ്വെയറിൽ പിഴവു സംഭവച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു സമിതിയേയും നിയോഗിച്ചിട്ടുണ്ട് വകുപ്പുതല അന്വേഷണത്തിനു പുറമെ ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടത്താനും തീരുമാനിച്ചതായി മന്ത്രി ജലീൽ മറുപടി നൽകി മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ പിച്ചശ്രീരാമകൃഷണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ചു നിയമസഭയിൽ നിന്നു പ്രതിപക്ഷം പ്രാക്കൌട്ട് നടത്തി

പല തവണ പരീക്ഷകളിൽ തോറ്റവരെ മാർക്കു നൽകി ജയിപ്പിക്കുന്ന നടപടി നിസാരമായി കാണാനാകില്ല മന്ത്രിയും ഗവൺമെന്റും സർവ്വകലാശാലയെ കരിവാരി തേക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

വിവരസഞ്ചയത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യന്ത്രി പറഞ്ഞു പാസ്പോർട്ട് വെരിഫിക്കേഷന് എൻ

സി നൽകാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും ഇതിനായി ഊരാളുങ്കൽ സൊസൈറ്റിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ ഫോൺ പദ്ധതി സംസ്ഥാനത്ത് കെ ഫ്ടോൺ പദ്ധതി നടപ്പിലാക്കുന്നതിനായി വിവരസാങ്കേതിക വകുപ്പ് ക്രെഫോൺ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

വൈദ്യുതിമന്ത്രി എം എം മണി അധ്യക്ഷനാകും ഒരു റിപ്പോർട്ട്

വി ശൃംഖലയിലൂടെ ഇന്ത്യയുടെ ഏതു ഭാഗത്തുനിന്നും കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കാനാകും പ്രസരണനഷ്ടം കുറച്ച് കേരളത്തിന് ഗുണമേന്മയുള്ള വൈദ്യുതി എത്തിക്കാനാകും എന്നതും നേട്ടമാണ്

ലൈനിലൂടെ ഖ്രൈദ്ധുതി എത്തിത്തുടങ്ങിയതോടെ നിലവിൽ പ്രസരണ ശൃംഖലയിൽ രണ്ടു കിലോവാട്ട് വർധനയുണ്ടായി

മരട് ഫ്ളാറ്റ് മരടിൽ തീരദേശ പരിപാലനച്ചട്ടം ലംഘിച്ച് നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫീസർ സ്നേഹിൽകുമാർ സിംഗ് മന്ത്രി എ സി മൊയ്തീനുമായി ചർച്ച നടത്തുകയാണ്

ഫ്ളാറ്റുകൾ പൊളിക്കാനായി ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി യോഗം വിലയിരുത്തും

ബോബ്ഡെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു